രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും

ഭാഗിക തുടക്കം

മഗർ ഇന്ന് കൊച്ചിയിൽ എത്തും

എസ് ജലാശ്വയുടെ രണ്ടാം ദൌതൃം വെള്ളിയാഴ്ച

സ്വീകരിക്കാതെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്താനുള്ള ചില രാജ്യങ്ങളുടെ നീക്കത്തിനെതിരെ ലോകാരോഗ്യ സംഘടന

ടിറ്ററിലൂടെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യം അറിയിച്ചത്

ക് ല്ട്ടേക്ഡൌൺ പശ്ചാത്തലത്തിൽ ഇത് നാലാം തവണയാണ് പ്രധാന്ത്മന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്

ആർ സി ടി സി വെബ്സൈറ്റ് വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്

സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം മാത്രമേ യാത്രക്കാരെ ട്രെയിനിൽ കയറാൻ അനുവദിക്കുകയുള്ളൂ യാത്രക്കാർ നിർബന്ധമായും മാസ്കുകൾ ധരിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും വേണം യാത്ര ഉറപ്പാക്കുന്ന ടിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ സ്റ്റേഷനുകളിൽ പ്രവേശനം അനുവദിക്കുകയുള്ളൂ

മറ്റു മാർഗങ്ങളിലൂടെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് റദ്ദാക്കി റെയിൽമാർഗം വരുന്നു എന്ന് കാണിച്ച് പുതുതായി അപേക്ഷിക്കേണ്ടതാണ് ഇതുവരെ പാസിന് അപേക്ഷിക്കാത്തവർക്ക് പുതുതായി അപേക്ഷിക്കാനുള്ള സൌകര്യവും ഉണ്ടാകും

വിശദാംശങ്ങളുമായി ആല്പ്പുഴയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ

കോഴിക്കോട് സ്വദേശികളായ മൂന്ന് പേരെയും പാലക്കാട് സ്വദേശിയായ ഒരാളെയുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചത്

കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ വോയ്സ് കേരളത്തിൽ നിന്നും ലക്ഷദ്ധീപിൽ നിന്നുമുള്ളവരെയാണ് ഐ

എസ് ജലാശ്ചയുടെ രണ്ടാം ദൌത്യത്തിൽ വെള്ളിയാഴ്ച കൊച്ചിയിൽ എത്തിക്കുന്നത്

ഇത്തവണ തമിഴ്നാട് സ്വദേശികളെ കൂടി കന്യാകുമാരിയിൽ എത്തിക്കാൻ ഉദ്ദേശിച്ചിരുണെങ്കിലും തൃമിഴ്നാട് സർക്കാരിന്റെ അനുമതി ലഭിക്കാത്തിനാൽ തീരുമാനം മീറ്റുകയായിരുന്നു ഇതിന് പുറമെ കേരളത്തിലേക്കും ചെണ്ണ ് ന്യൂഡൽഹി ബംഗളൂരു മുംബൈ എന്നീ നഗരങ്ങളിലേക്കും മാല്പദീപിൽ നിന്ന് എയർ ഇന്ത്യ വിമാന സർവ്വീസ് നടത്താൻ ആലോചിക്കുന്നതായി മാലദ്വീപിലെ ഇന്ത്യൻ ഹൈക്കമ്മിഷണർ ്ക്അറിയിച്ചു ഇതിൽ ഗർഭിണികൾ മുതിർന്ന പൌരന്മാർ ദ്വീപ്പിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികൾ അടിയന്തര വൈദ്യസഹായ്ര ആവശ്യമുള്ളവർ തുടങ്ങിയവർക്കാണ് പ്രഥമ പരിഗണന

രാത്രി ഏഴ് മണിയോടെ കൊച്ചിയിൽ എത്തുന്ന ഐ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പരിശോധനകൾക്ക് ശേഷം ഇവരെ ക്വാറന്റൈനിലാക്കി മസ്ക്കറ്റ് സൌദി എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാന സർവ്വീസുകളും ഇന്ന് ചെന്നൈയിലെത്തുന്നുണ്ട്

കൊറോണ പശ്ചാത്തലത്തിൽ സാമ്പത്തിക സഹായം ഉറപ്പാക്കാൻ ഇതിലൂടെ സാധിക്കുമെന്ന് ധനകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അഭിപ്രായപ്പെട്ടു

ഫ്രാൻസ് ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങൾ ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതും നെതർലാൻഡ്സിൽ സ്കൂളുകൾ തുറന്നതും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണിത്

ലോകമെമ്പാടും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തവണ നെഴ്സസ് ദിനം ആചരിക്കുന്നത്

വോയ്സ് എല്ലാവർക്കും ആരോഗ്യം അതിനെ നയിക്കുന്ന ശബ്ദം എന്ന പ്രമേയവുമായാണ് ഈ വർഷത്തെ നെഴ്സസ് ദിനാചരണം മനുഷ്യാരോഗ്യത്തിന്റെ കാവലാളുകളായി ദിനരാത്രങ്ങൾ കർമ്മനിരതരായി ജീവിക്കുന്നവരാണ് ലോകമെമ്പാടുമുള്ള നെഴ്സുമാർ പട്ടാളക്കാരെ ശുശ്രൂഷിക്കുന്നതിനായി രാത്രിയിലും റാന്തൽ വിളക്കുമായി എത്തിയ ഫ്ളോറൻസ് നൈറ്റിംഗ്ഗേലിന്റെ ജന്മദിനമാണ് നെഴ്സസ് ദിനമായി ആചരിക്കുന്നത് ലോകമെമ്പാടും നടക്കുന്ന യുദ്ധ സമാനമായ കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ മുൻനിരയിലും അവർ ഉണ്ട് നിസ്വാർത്ഥ സേവനം അനുഷ്ഠിക്കുന്ന നെഴ്സുമാർക്ക് ആദരം അർപ്പിക്കുകയാണ് ലോകം ഇന്ന് ന്യൂസ് ഡെസ്ക് ആകാശവാണി

സംസ്ഥാനങ്ങളിലെ ആരോഗ്യ വകുപ്പുകളുടെ സഹകരണത്തോടെ തിരഞ്ഞെടുത്ത ജില്ലകളിൽ ജനസംഖ്യാ അടിസ്ഥാനത്തിലാണ് സർവേ നടത്തുന്നത്